കുംഭമേള ഘോഷയാത്ര്യ പ്രിതീകാത്മകമായി നടത്തുവാൻ പ്രധാനമന്ത്രി നര്യേന്ദ്രമോദി

സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും

കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ ആയിരത്തിന് മുകളിൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്

രണ്ട് കുംഭമേളയുടെ തുടർന്നുള്ള ചടങ്ങുകൾ പ്രതീകാത്മകമായി നടത്താൻ സ്വാമി അവ്ധേശാനന്ദ് ഗിരിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഇത് കോവിഡിനെതിരായ പോരാട്ടത്തിന് ശക്തി പകരുമെന്നും അദ്ദേഹം പറഞ്ഞു

ആദിവാസി മേഖലയിൽ ഉൾപ്പെടുന്ന ദണ്ഡേവാഡ ജില്ലയിൽ നാളെ മുതലാവും ലോക്ഡൌൺ നിലവിൽ വരിക

മറ്റ് ഏഴ് ജില്ലകളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ സമയക്രമീകരണം ഉൾപ്പെടെ കർശന നിയന്ത്രണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്

മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കോവിഡിന്റെ ചുമതലയുള്ള മന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും

ഗുജറാത്ത് സർക്കാരിന്റെ അഭ്യർത്ഥന കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം

ഇന്നലെയും ഇന്നുമായി രണ്ടീര് ലക്ഷം പേരെ കോവിഡ് പരിശോധനയ്ക്കു വിധേയരുക്ക്ാൻ ലക്ഷ്യമിട്ടുള്ള വ്യാപക പരിശോധനയാണ് സംസ്ഥാക്കൃത്ത് പുരോഗമിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്ത്ന്ങ്ങളിൽ സജീവ പങ്കാളിയായവർ പൊതുജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നവർ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ ഹോട്ടലുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർ തുടങ്ങി വൃത്യസ്ത മേഖലകളിലുള്ളവരിൽ പരിശോധന നടത്തും ഇതോടൊപ്പം വാക്സിനേഷൻ വ്യാപിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്

ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു

മുൻ രാഷ്ട്രപതി അബ്ദുൾ കലാമിന്റെ ശിഷ്യനായിരുന്ന അദ്ദേഹം വനവൽക്കരണ പ്രവർത്തനങ്ങളിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു

ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെ വോട്ടർമാരോടും വോട്ടുചെയ്യാനെത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിം ബർധമാനിലെ അസൻ സോളിലും ദക്ഷിണ ബിനാച് പൂരിലെ ഗംഗാ രാംപൂരിലും ഇന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്യും ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഒരു റോഡ് ഷോയിലും രണ്ട് റാലികളിലും പങ്കെടുക്കും തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഇന്ന് മൂന്ന് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും

അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ സ്ഥിരമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ഈ രണ്ട് സ്റ്റേഷനുകൾ